ഇതിനായി കോർപ്പറേറ്റ് നികുതി കുറയ്ക്കുന്ന തുൾപ്പെടെ ഒട്ടേറെ നടപടികൾ ഗവ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു ഡൽഹിയിൽ ഇന്ത്യാ സ്വീഡൻ വ്യാപാര ഉച്ച്കോടിയിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി ബാങ്കിംങ് ഖനനം ഇൻഷൂ റൻസ് തുടങ്ങിയ മേഖലകളിലാണ് കൂടുതൽ പ്രിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും നിർമലാ സീതാരാമൻ അറിയിച്ചു അടുത്ത അഞ്ചു വർഷത്തിനകം അടിസ്ഥാന വികസന മേഖ ലയിൽ ഒരു ലക്ഷം കോടിയോളം രൂപ നിക്ഷേപിക്കാൻ പദ്ധതി യുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഥമ രാഷ്ട്രപതി ഡോ

രാജേന്ദ്രപ്രസാദ് സ്വാതന്ത്ര്യസമര ത്തിൽ സജീവ പങ്കു വഹിച്ചതായി പ്രധാനമന്ത്രി ടിറ്ററിൽ പറഞ്ഞു ഭരണഘടനയ്ക്കു രൂപം നൽകുന്നതിൽ അദ്ദേഹം പ്രത്യേകം സംഭാവന അർപ്പിച്ചു വെന്നും മോദി പറഞ്ഞു രാജേന്ദ്ര പ്രസാദിന്റെ വിനയം രാജ്യ ത്തിന് എന്നും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെ ട്ടു

കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ റഫറൽ ആശുപത്രിയായ ശ്രീചിത്രയിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ പദ്ധതികൾ നടപ്പാക്കുന്നില്ലെന്ന് സുധാക രൻ കുറ്റപ്പെടുത്തി ചികിത്സാ സൌകര്യം വെട്ടിക്കുറിച്ചതിനെതിരെ സംസ്ഥാന മനു ഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം ആശുപത്രി ഡയറ ക്ടർക്ക് നോട്ടീസ് അയച്ചിരുന്നു നാലാഴ്ചക്കകം വിശദീകരണം നൽകണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് അയോധ്യാ ഭൂമിതർക്ക കേസിൽ ഹാജരാകുന്നതിൽ നിന്ന് ജംഇയ്യത്തുൽ ഉലമ ഐ ഹിന്ദ് മുതിർന്ന അഭിഭാഷകൻ രാജീവ് ധവാനെ മാറ്റി അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയാണ് തന്നെ മാറ്റിയ തെന്ന് രാജീവ് ധവാൻ ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു തനിക്ക് അനാരോഗൃം ഉണ്ടെന്നത് അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഭിന്നശേഷി ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച സംസ്ഥാനത്തിന് നൽകുന്ന ഈ വർഷത്തെ ദേശീയ പുരസ്കാരം മന്ത്രി കെ കെ ശൈലജ ഡൽഹിയിലെ വിജ്ഞാൻഭവനിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിൽ നിന്ന് ഏറ്റു വാങ്ങി ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും മുഖ്യ ധാരവത്കരണത്തിനു മായി സംസ്ഥാനം നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങളാണ് അവാർഡി നായി പരിഗണിച്ചത് മികച്ച സംസ്ഥാനത്തിന് ആദ്യമായാണ് അവാർഡ് കേരളത്തിന് ലഭിക്കുന്നത്

അധികാരമേറ്റ ശേഷം ഭിന്നശേഷിക്കാരുടെ ക്ഷേമ ത്തിനായി നടപ്പാക്കി വരുന്ന നൂതന പദ്ധതികൾക്ക് ലഭിച്ച അംഗീ കാരമാണ് പുരസ്കാരമെന്ന് മന്ത്രി പറഞ്ഞു ഭിന്നശേഷി മേഖല യുടെ സമഗ്ര പുരോഗതിക്കായി വലിയ പ്രധാന്യമാണ് ഗവ നൽകു ന്നതെന്ന് ശൈലജ അറിയിച്ചു കാഴ്ച്ച പരിമിതിയിൽ മികച്ച വനിതാ ജീവനക്കാരുടെ വിഭാഗ ത്തിൽ ബേബി ഗിരിജയും പുരുഷ വിഭാഗത്തിൽ ബാലൻ പൂത്തേരിയും സർഗാത്മക ഭിന്നശേഷി വനിതാർവിഭാഗത്തിൽ എസ് കൺമണിയും പുരുഷ വിഭാഗത്തിൽ ആർ രാഗേഷ് കുമാറും മൾട്ടിപ്പിൾ ഡിസെബിലിറ്റി വിഭാഗത്തിൽ സി പ്രശാന്തും അവാർഡ് ഏറ്റുവാങ്ങി ഇന്ന് ലോക ഭിന്നശേഷി ദിനും

ഭിന്നശേഷിക്കാരുടെ പ്രശ്ന ങ്ങൾ പരമാവധി ഇല്ലാതാക്കി അവരെ സാധാരണ ജീവിതത്തി ലേയ്ക്ക് നയിക്കുക ്എന്ന ലക്ഷ്യം കൂടി ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നു ഭിന്ന ശേഷിക്കാരുടെ ഉന്നമനത്തിനായി നല്ല രീതിയിൽ പരിശീലനവും പരിരക്ഷണവും ആവശ്യ മാണെന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കേരളത്തിൽ ഭിന്നശേഷിക്കാരായവർക്ക് വേണ്ടി നടപ്പി ലാക്കുന്ന ക്ഷേമ പദ്ധതികൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ

സുമേഷ് അധ്യക്ഷനായി

ഇരുചക്രവാഹനങ്ങളിൽ പിൻസീറ്റ് യാത്രക്കാരുടെ ഹെൽമറ്റ് പരിശോധന കൂടുതൽ ശക്തമാക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷ ണർ ജില്ലകളിലെ ഉദ്യോഗസ്ഥർക്ക് നിർദേശം നൽകി പിഴ ഒടു ക്കാൻ വിസമ്മതിക്കുന്നവരോട് തർക്കിക്കാതെ നിയമലംഘനം ക്യാമറയിൽ പകർത്തിയ ശേഷം റിപ്പോർട്ട് തയ്യാറാക്കാനും നിർദേ ശിച്ചിട്ടുണ്ട്

ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം പാലക്കാട് ജില്ലകളിലെ യാത്ര ക്കാർക്കാണ് പിഴ ചുമത്തിയത് തിരുവനന്തപുരം കൈതമുക്കിൽ റെയിൽവെ പുറംമ്പോക്കിൽ താമസിക്കുന്നവരുടെ ജീവിതാവസ്ഥയെ കുറിച്ച് ഗവൺമെന്റ് പരി ശോധിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപു രത്ത് പറഞ്ഞു നാം കാണുന്നതിൽ നിന്നും അപ്പുറത്താണ് സാമൂഹ്യ സാഹചര്യങ്ങളെന്ന് തെളിയിക്കുന്നതാണ് കൈതമു ക്കിലെ അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും അവസ്ഥയെന്നും പട്ടിണി മൂലം കുഞ്ഞുങ്ങളെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയ സംഭവം നമുക്ക് നാണക്കേടാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കിടപ്പാടം ഉണ്ടാക്കുന്നതിനു വേണ്ടി അമ്മ പരിശ്രമിച്ചി ല്ലെന്നും അവർക്ക് അതിൽ താൽപര്യമുണ്ടായിരുന്നില്ലെന്നും കട കംപള്ളി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു ട കൈതമുക്കിൽ അമ്മയും കുഞ്ഞുങ്ങളും പട്ടിണിയിലാണെന്ന കാര്യം കേരളത്തിന് ലജ്ജാകരമാണെന്ന് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു വേദനാജനകമായ ഇത്തരം വാർത്തകൾ വരാതെയിരിക്കട്ടെയെന്നും അമ്മയ്ക്കും കുഞ്ഞു ങ്ങൾക്കും ആവശ്യമായതെല്ലാം കോർപ്പറേഷനും ഗവൺമെന്റും ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം കൈതമുക്കിൽ പട്ടിണിയിലായ അമ്മയ്ക്ക് കോർപ്പറേഷനിൽ താൽക്കാലിക ജോലി നൽകുന്ന ഉത്തരവ് മേയർ കെ ശ്രീകുമാർ അൽപസമയം മുമ്പ് കൈമാറി

പുറംമ്പോക്കിൽ താമസിക്കുന്ന പലർക്കും ആവശ്യമായ തിരിച്ചറിയൽ രേഖകൾ ഇല്ലെന്നും ഇക്കാ ര്യത്തിൽ നഗരസഭയ്ക്ക് ചെയ്യാനാവുന്നതെല്ലാം ഉടൻ ചെയ്യു മെന്നും മേയർ പറഞ്ഞു

ചന്ദ്രോപരിതലത്തിൽ ലാന്റർ പതിച്ച മേഖലയുടെ ദൃശ്യങ്ങൾ നാസ പുറത്തുവിട്ടു നാസ യുടെ ലൂണാർ ഓർബിറ്റർ ക്യാമറയാണ് ദൃശ്യങ്ങൾ ഒപ്പിയെടു ത്തത് ലാന്റർ പതിക്കുന്നതിന് മുമ്പും ശേഷവും ചന്ദ്രോപരിതല ത്തിലുണ്ടായ മാറ്റങ്ങൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സെപ്റ്റംബർ ഏഴിനാണ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പ് വിക്രം ലാന്ററുമായി ഐഎസ്ആർഒക്ക് ബന്ധം നഷ്ട മായത്

ലാൻഡർ പതിക്കുന്നതിന് മുമ്പും ശേഷവും ചന്ദ്രോപരിത ലത്തിലെ ചിത്രങ്ങൾ ഷൺമുഖ സുബ്രഹ്മണ്യൻ പഠനവിധേയമാ ക്കിയിരുന്നു എന്നാൽ നാസയുടെ കണ്ടെത്തലിനെ കുറിച്ച് ഐഎസ് ആർ ഒ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പുതുക്കിയ മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് നിരക്കുകൾ പ്രാബലൃത്തിൽ വന്നു

റിലയൻസ് ജിയോ നിരക്കുകൾ വെള്ളിയാഴ്ച നിലവിൽ വരും ബി എസ് എൻ എല്ലിന്റെ പുതുക്കിയ നിരക്കുകളും ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് സേവന ദാതാക്കൾ അറിയിച്ചു

ആറാം തവണയാണ് മെസ്സി ഈ നേട്ടം സ്വന്തമാ ക്കുന്നത് ഏറ്റവും കൂടതൽ ബാലൺദ്യോർ നേടുന്ന താരമെന്ന ബഹുമതിയും ബാഴ്സലോണയുടെ ഈ സൂപ്പർ സ്ട്രൈക്കർക്ക് സ്വന്തമായി അമേരിക്കയുടെ മെഗൻ റെപീനോയാണ് മികച്ച വനിതാ ഫുട്ബോളർ ബ്രസീലിന്റെ അലിസണെ ഏറ്റവും നല്ല ഗോൾ കീപ്പറായും തെരഞ്ഞെടുത്തു മികച്ച യുവതാരത്തിന് നൽകുന്ന കോപ്പ ട്രോഫി ഡച്ച് താരം ഡിലിറ്റിന് ലഭിച്ചു കാഴ്ച്ച പരിമിതർക്കായി രാജസ്ഥാനിലെ ഉദയപൂരിൽ നട് ക്കുന്ന അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ കേരളം ഇന്ന് രാജസ്ഥാനെ നേരിടും പ്രാഥമിക ഘട്ട മത്സരങ്ങ ളിൽ മധ്യപ്രദേശിനെയും ഗുജറാത്തിനെയും പരാജയപ്പെടുത്തി യാണ് കേരളം ഫൈനലിൽ എത്തിയത്

തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ മജിസ്ട്രേറ്റും അഭി ഭാഷകരും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ ബാർ കൌൺസിൽ സംഘം ഇന്ന് കോടതിയിലെത്തിതെളിവെടുപ്പ് നടത്തും തെളി വെടുക്കുന്ന കൌൺസിൽ പരിശോധനാ റിപ്പോർട്ട് മറ്റന്നാൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറും കഴിഞ്ഞ ദിവസം ഒരു സംഘം അഭിഭാഷകർ ചീഫ് ജസ്റ്റിസിനെ സന്ദർശിച്ച് പ്രശ്ന ത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ബാർ കൌൺസിലിനെ പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയത്

ചർച്ചക്കായി കൊച്ചി യിലെത്താൻ അമ്മ ഭാരവാഹികൾ ഷെയ്നിനോട് ആവശ്യപ്പെട്ടി ട്ടുണ്ട് ആദ്യം ഷെയ്നുമായും പിന്നീട് ഇതര സിനിമാ സംഘടന കളുമായും ചർച്ച നടത്തിയ ശേഷമായിരിക്കും മറ്റന്നാൾ നിർമ്മാ താക്കളുമായി ചർച്ച നടത്തുക നടൻ ഷെയ്ൻ നിഗമിനെ സിനിമകളിൽ നിന്ന് വിലക്കുന്നതി നോട് യോജിപ്പില്ലെന്ന് ചലച്ചിത്ര അക്കാദമി ചെയ്ർമാനും സംവി ധായകനുമായ കമൽ തിരുവനന്തപുരത്ത് പറഞ്ഞു